ന്മുളയിലെ സ്ട്രോംഗ് റൂം തുറന്നുപരിശോധിക്കും എടപ്പാൾ മേൽപ്പാല നിർമ്മാണത്തിന്റെ പൈലിംഗ് വൈകിട്ട് തുടങ്ങും

രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റ് വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഇതുസംബന്ധിച്ച വിജ്ഞാപനം രാഷ്ട്രപതി ഭവൻ പുറപ്പെടുവിച്ചു

പ്രധാനമന്ത്രിക്കും മന്ത്രിസഭാ അംഗങ്ങൾക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കും സഖ്യകക്ഷി കളായ യുണൈറ്റഡ് ജനതാദൾ അണ്ണാ ഡി എം കെ തുടങ്ങിയ കക്ഷി കൾക്ക് മന്ത്രിസഭയിൽ പങ്കാളിത്തം നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ട് മുൻ ഗവൺ മെന്റിലെ മിക്ക മന്ത്രിമാർക്കും പുതിയ ഗവൺമെന്റിലും സ്ഥാനം ലഭിച്ചേക്കുമെന്ന് സൂചനയുണ്ട് എന്നാൽ പുതുമുഖങ്ങളുടെ കാരൃത്തിൽ വൃക്തത വന്നിട്ടില്ല ആരോഗ്യകാരണങ്ങളാൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ശനിയാഴ്ച എൻ ഡി എ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്ത നരേന്ദ്രമോദി അന്നുതന്നെ രാഷ്ട്രപതിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു

തെരഞ്ഞെടുപ്പുഫലത്തിനുശേഷം ആദ്യമായി മണ്ഡല ത്തിലെത്തുന്ന നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കഴിഞ്ഞു ബബത്പൂർ വിമാനത്താവളത്തിലെത്തിയശേഷം ഹെലികോപ്റ്ററിലായിരിക്കും അദ്ദേഹത്തിന്റെ തുടർയാത്ര കാശി വിശ്വ നാഥ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും

വിജയിപ്പിച്ച ജനങ്ങളെ നരേന്ദ്രമോദി നന്ദി അറിയിക്കുന്ന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന മേഖലയിൽ സമാധാ നവും ക്ഷേമവും ഉറപ്പുവരുത്താൻ ഇരുരാജ്യങ്ങളും പരസ്പര വിശ്വാസവും സംഘർഷരഹിതമായ സാഹചര്യവും സൃഷ്ടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം വട്ടവും മികച്ച വിജയം നേടിയ നരേന്ദ്രമോദിയെ അഭിനന്ദിക്കാൻ ടെലിഫോണിൽ വിളിച്ച പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടിണിക്കെതിരെ ഒരുമിച്ച് പോരാടാമെന്ന മുൻ നിർദ്ദേശം പ്രധാ നമന്ത്രി നരേന്ദ്രമോദി ഇമ്രാൻഖാനോട് ആവർത്തിച്ചു

കാബിനറ്റ് സെക്രട്ടറിക്കും സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും ഇതുസം ബന്ധിച്ച് കമ്മീഷൻ നിർദ്ദേശം നൽകി

ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ഔദ്യോഗിക വക്താവ് സീതാംശു കർ ട്വിറ്ററിൽ അഭ്യർത്ഥിച്ചു ് അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ സഹായിയായിരുന്ന ബറോളിയ മുൻ ഗ്രാമത്തല വൻ സുരേന്ദ്രസിംഗ് വെടിയേറ്റ് മരിച്ചു ശനിയാഴ്ച രാത്രി ബൈക്കിലെത്തിയ സംഘം സുരേന്ദ്രസിംഗിനെ വീട്ടിലെത്തി വെടിവെയ്ക്കുകയായിരുന്നു സംഭ വത്തോട് ബന്ധപ്പെട്ട് ഏഴുപേരെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു

അന്തരിച്ച കേരള കോൺഗ്രസ് എം നേതാവ് കെ

മാണിക്ക് ചരമോപ ചാരം അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിയും നാളെ സ്വാശ്രയകോളജ് ഫീസ് നിർണയ ബിൽ സഭയിൽ അവതരിപ്പിക്കും ബജറ്റ് ചർച്ച മറ്റന്നാൾ ആരംഭി ക്കും റംസാനായതിനാൽ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ചവരെ സഭ ചേരി ല്ല ജൂലൈ അഞ്ചുവരെ സമ്മേളനം ചേരാനാണ് തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുശേഷം ആദ്യമായി ചേരുന്ന സഭാസമ്മേളനത്തിൽ എം എൽ എ മാരായ എ എം ആരിഫ് കെ മുരളീധരൻ അടൂർപ്രകാശ് ഹൈബി ഈഡൻ എന്നിവർ സഭയിലെത്തും

പിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട ഇവർ വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി രാജിവെയ്ക്കും കേരളത്തിന്റെ പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് ലോകബാ ങ്കിൽ നിന്ന് വായ്പയെടുക്കുന്നത് സംബന്ധിച്ച അന്തിമചർച്ച ഇന്നും നാളെയും ഡൽഹിയിൽ നടക്കും

ലോകബാങ്ക് ഓഫീസിലെ ചർച്ചയിൽ വായ്പാരേ ഖകൾ പരിശോധിക്കുകയും ഒപ്പുവയ്ക്കുകയും ചെയ്യും

ഏകോപനസമിതി ഇന്ന് തിരുവനന്തപുരത്ത് ചേരും കന്റോൺമെന്റ് ഹൌസി ന ലാണ് യോഗം ആലപ്പുഴ മണ്ഡലത്തിലെ പരാജയ കാരണങ്ങൾ യോഗം ചർച്ച ചെയ്യും കെ പി സി സി സംയുക്തയോഗം നാളെ ഉച്ചയ്ക്കും രാഷ്ട്രീയകാര്യസമിതിയോഗം വൈകിട്ടും ഇന്ദിരാഭവനിൽ ചേരും

ശബരിമല വിഷയം കേരളത്തിൽ പാർട്ടിക്ക് ദോഷ്ട് ചെയ്തോ എന്നതടക്കം കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും കേരളത്തിൽ നിന്ന് ഒന്നും തമിഴ്നാട്ടിൽ നിന്ന് രണ്ടും സീറ്റുകളിൽ മാത്രമാണ് സി പി ഐ എമ്മിന് ജയിക്കാനായത് ഇക്കാര്യവും യോഗത്തിൽ വിഷയമായേക്കും

പ്രപളയത്തിൽ സർവവും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിൽ സഹകരണമേഖല വഹിക്കുന്ന പങ്ക് ശ്രദ്ധേയമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കെയർ ഹോം പദ്ധതി പ്രകാരം പന്തളം സർവ്വീസ് സഹകരണ ബാങ്ക് നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി

സ്ത്രീകളെ മാറ്റി നിർത്തുന്ന സമൂഹത്തിന്റെ വോട്ട് എൽ ഡി എഫിന് വേണ്ടെന്ന് മന്ത്രി ജി

കേരള ഗസറ്റഡ് ഓഫീ സേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘ ടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം

എടപ്പാൾ മേൽപ്പാല നിർമാണത്തിന്റെ പൈലിങ് പ്രവൃത്തി ഇന്നുരാത്രി തുടങ്ങും ജങ്ഷനിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് ഗതാഗതനിയന്ത്രണം ഏർപ്പെടുത്തി പെരുന്നാൾ തിരക്കായതിനാൽ ദീർഘദൂര ബസുകൾ ജങ്ഷൻ വഴി തന്നെ കടത്തിവിടാമെന്ന ധാരണയായി മേൽപ്പാല നിർമാണം പൂർത്തിയാകുന്നതുവരെ ഗതാഗതനിയന്ത്രണം തുടരും ചെറുവാഹനങ്ങൾക്ക് എടപ്പാൾ ടൌൺ വഴി പ്രോകാവുന്നതാണ്

കോഴിക്കോട് നഗരസഭയുടെ കടൽതീര ശുചീകരണ പ്രവൃത്തി മന്ത്രി ടി

രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

പുനലൂർ തലയൻകുളം പവർഹൌസ് വാർഡ് സ്വദേശികളായ ശ്യാംകൃഷ്ണൻ പ്രതീഷ് എന്നിവരാണ് മരിച്ചത് വൈകിട്ട് അഞ്ച് മണിയോടെ പുനലൂർ ഫയർസ്റ്റേഷന് സമീപം കൊച്ചുവിളക്കടവിലായിരുന്നു അപകടം മൃതദേഹങ്ങൾ പുനലൂർ താലൂക്കാശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്

ചാലക്കുടിയിൽ എച്ച് വൺ എൻ വൺ രോഗബാധ സ്ഥിരീകരി ച്ചു അതീവഗുരുതരാവസ്ഥയിലായ യുവാവിനെ കൊച്ചിയിലെ സ്ഥകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി

വയനാട് പുൽപ്പള്ളി കന്നാരംപുഴയിൽ ഒരാളെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ പ്രതി പുളിക്കൽ ഷാർളിയെ പൊലീസ് പിടികൂടി

ഇയാളുടെ വെടിയേറ്റ മറ്റൊരു യുവാവ് ചികിത്സയിലാ ണ്

മാനന്തവാടി ചെറ്റപ്പാലം പള്ളിവളപ്പിൽ മുനീറാണ് പിടിയിലായത് മറ്റ് രണ്ടുപേർക്കായി തെരച്ചിൽ ഊർജ്ജിതമാ ക്കി

സംസ്ഥാന ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇടുക്കി ശാന്താൾ ജ്യോതി പബ്പിക് സ്കൂൾ ഇന്റോർ സ്റ്റേഡിയത്തിൽ ഇന്ന് ആരംഭി ക്കും

സംസ്ഥാന ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ഓവറോൾ ചാമ്പൃന്മാരായി

തിരുവനന്ത പുരം വെഞ്ഞാറമൂടിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജൂനി യർ സബ്ജൂനിയർ വിഭാഗങ്ങളിൽ രണ്ടാം സ്ഥാനം നേടി

കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ജനത്തിരക്കേറുന്നു ഇന്നലെ അർദ്ധരാത്രിയോടെ ആരംഭിച്ച ഇളനീരാട്ടം ഇന്ന് പുലർച്ചെയോടെ സമാപിച്ചു

രാവിലെ വില്ലേജ് റോക്ക് സ്റ്റാർ എന്ന ചിത്രം പ്രദർശിപ്പിക്കും വൈകിട്ട് സംസ്ഥാന ചലച്ചിത്രോത്സവത്തിൽ പുരസ്കാരം നേടിയവരെ ആദരിക്കും

അഖിലകേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ പാല ക്കാട് ജില്ലാ കമ്മിറ്റിയുടെ കുമാർ കിള്ളിക്കുറിഗ്ശി മംഗലം അനുസ്മരണ സമ്മേളനം വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കന്ററി സ്കൂളിൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ

ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ പനമണ്ണ അധ്യ ക്ഷനായിരുന്നു